രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ ദേശീയ നേതാക്കൾ ഈ ആഴ്ചയും കേരളത്തിൽ പ്രചാരണത്തിനെത്തും

കാർഷിക വായ്പാ മൊറട്ടോറിയിൽ ഫയൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കി്ല്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർപ്പ ദ

വിശുദ്ധവാരത്തിന് തുടക്കമായി

വിളവെടുപ്പിന്റെ ഗൃഹാതുര സ്മരണകളുമായി വീണ്ടും ഒരു വിഷു ്കൂടി നാളെ വിവിധ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനം ഒരുക്കും

എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഇലക്ഷൻ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി സ്ഥാനാർത്ഥികളും ഊർജ്ജിത പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ പ്രധാനമന്ത്രിയും മുതിർന്ന ബി

പി നേതാവുമായ നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവരടക്കമുള്ളവർ ഈ ആഴ്ചയും കേരളത്തിലെത്തുന്നുണ്ട്

തിരുവനന്തപുരത്തെയും പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

വാണിജ്യ ബാങ്കുകളിൽനിന്നും എടുത്ത എല്ലാ വായ്പകൾക്കും ആനുകൂല്യം ലഭിക്കുംവിധമുള്ള പാക്കേജാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പു പ്രഖ്യാപനത്തിനുമുമ്പ് ഉത്തരവിറക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം

കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം ഒക്ടോബർ വരെ നിലനിൽക്കുന്നുണ്ട്

വെബ് ക്യാമറയുടെ സഹായത്തോടെ പോളിംഗ് കമ്പ്യൂട്ടറിൽ റെക്കോഡ് ചെയ്ത് സൂക്ഷിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

അടൂരിൽ എൽഡിഎഫ് ന്റെ തെരഞ്ഞെടുപ്പു പ്രചാരണ് പിയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല വീഷ്ടയ്ത്തിൽ സംഘപരിവാർ തെറ്റിധാരണ പരത്തുമ്പോൾ വലിയ പ്രാധാന്യത്തോടെ ശബരിമലയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വേണുഗോപാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നിരീക്ഷകരുണ്ടെന്ന് എ

സി ജനറൽ സെക്രട്ടറി കെ

തിരുവനന്തപുരത്ത് പ്രത്യേക നിരീക്ഷികനെ നിയമിച്ചത് അധിക ശ്രദ്ധയുണ്ടാകാനാണെന്നും കെ

അതിനിടെ കേരളത്തിലെ കോൺഗ്രസ്സിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മുകൂൾ വാസ് നിക് ഉൾപ്പടെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്

രാജ്യമെമ്പാടും വിവിധ അനുസ്മരണ പരിപാടികളാണ് നടക്കുന്നത് അധകൃതരുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ ഡോ

അംബേദ്കറുടെ ജന്മവാർഷികദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖ്ച നേതാക്കൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു

ഓശാന വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി ക്രിസ്തുദേവന്റെ ജറുസലേം പ്രവേശനത്തിന്റെ ഓർമയിലാണ് വിശ്വാസികൾ ഓശാന ആചരിക്കുന്നത് സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു

ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം പീഡാസഹനം കുരിശുമരണം ഉയിർപ്പ് തിരുനാൾ എന്നിവയുൾപ്പെട്ട വിശുദ്ധ വാരാചരണ തിരുക്കർമ്മങ്ങൾക്കും ഇന്ന് തുടക്കമായി പെസഹ ദുഃഖവെള്ളി ദുഖശനി ശുശ്രൂഷകൾക്കു ശേഷം ഞായറാഴ്ച നടക്കുന്ന ഉയർപ്പു ശുശ്രൂഷകളോടെ വിശുദ്ധ വാരാചരണത്തിന് സമാപനമാകും വിഷു കൊന്നപ്പൂവിന്റെ നൈർമല്യവും വിളവെടുപ്പ് കാലത്തിന്റെ ഗൃഹാതുര സ്മരണകളുമായി വീണ്ടും ഒരു വിഷുക്കാലം

സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ദർശനമുണ്ടാകും

വടക്കൻ കേരളത്തിൽ ഇന്ന് തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കമായി കൃഴിഞ്ഞു വിഷു വിപണിയും സജീവമായി

വിഷുക്കണി കണ്ട് അയ്യപ്പദർശനം നടത്താൻ ഭക്തർ ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ബിജി വർഗീസ്

ബാബുപോൾ ഇന്നലെ അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ ഡോ

ബാബുപോളിന്റെ സംസ്കാരം ഇന്ന്

ചൂട് കേരളത്തിൽ കനത്ത ചൂടിന് പൂശമനമില്ല

ചെറായി ബീച്ച് വരെയാണ് പരിപ്പാട്ടി എറണാകുളം ജില്ലാ ഭരണകൂടം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കോർപ്പറേഷൻ വിനോദ സഞ്ചാരവകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി